ഇന്തൃയിലും വിദേശത്തുമുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുടെ സമ്മേളനം വൈഭവ് പ്രധാനമ്പ്രി ന്രേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം പ്പെയ്യും

ഒ തദ്ദേശ്വീയ്മാ്യി വികസിപ്പിച്ച ലേസർ ഗൈഡഡ് ആന്റി ടാങ്ക് ഗൈഡ്ഡ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു

മെലാനിയാ ട്രംപിനും കോവിഡ് സ്ഥിരീകരിച്ചു

ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ ജോക്കോവിച്ച് മൂന്നാം റൌണ്ടിൽ

സത്യഗ്രഹം എന്ന ആയുധം കൊണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തെ അടിയറവ് പറയിച്ച രാഷ്ട്ര പിതാവ് ഗാന്ധിജിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യമൊട്ടാകെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്

ഇന്ത്യൻ സ്വാതന്ത്രൃസമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്ന അദ്ദേഹം കഠിനമായ പ്രതിസന്ധിഘട്ടങ്ങളിലും സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ചു പ്രപ്ടർത്തിച്ചു

ഗുജറാത്തിലെ സബർമതിയിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിൽ ്ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്കു ് മാതൃകയായി

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ നടക്കുകയാണ്

രാഷ്ട്രപതി രാം നാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും രാജഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധിപാർക്കിലെ മഹാത്മഗാന്ധിയുടെ പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാരാർപ്പണവും പുഷ്പാഞ്ജലിയും നടത്തി ഗാന്ധിജിയുടെ ജൻമസ്ഥലമായ ഗുജറാത്തിൽ കീർത്തി മന്ദിർ പോർബന്ദർ സബർമതി ആശ്രമം എന്നിവിടങ്ങളിലും അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ന്യൂ ഡൽഹി വിജയ് ഘട്ടിലെ അദ്ദേഹത്തിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി ഇന്തൃയുടെ മഹാനായ പുത്രൻ ലാൽ ബഹാദൂർ ശാസ്ത്രി അസാധാരണമായ അർപ്പണബോധത്തോടെ രാജൃത്തെ സേവിച്ച തായി രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു ലാളിതൃത്തിന്റെയും വിനയത്തി ന്റെയും വിവേകത്തിന്റെയും പ്രതീകമാണ് ശാസ്ത്രിജി യെന്ന് ഉപരാഷ്ട്രപതി എം

രാജ്യം നേരിടുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ ഭീഷണികൾക്കെതിരെ പോരാടാൻ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ശാസ്ത്രിജിയുടെ മുദ്രാവാക്യം ജനങ്ങളെ പ്രേരിപ്പിച്ചതായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ടിറ്ററിൽ കുറിച്ചു ലാളിത്യത്തിന്റെ പ്രതീകമായ അദ്ദേഹം രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ജീപ്പിച്ച് നേതാവായിരുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യൻ വിദേശ ഇന്ത്യൻ ഗവേഷക രുടേയും വിദ്യാഭ്യാസ വിദഗ്ധരുടേയും ആഗോള വെർച്ചൽ ഉച്ചകോടിയാണ് വൈഭവ്

ആഗോള വികസനത്തിനായി രാജ്യത്തെ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതികവിദൃ അടിത്തറ മെച്ചപ്പെടുത്തുക ഇതിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപന ങ്ങളേയും പ്രതിഭകളേയും ഒരൊറ്റ വേദിയിൽ കൊണ്ടു വരിക എന്നതാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം

നേരത്തെ കനത്ത മഞ്ഞ് വീഴ്ച കാരണം വർഷത്തിൽ ആറ് മാസം താഴ്വരയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടിരുന്നു ടണൽ വരുന്ന തോടെ ഇതിന് ശാശ്വത പരിഹാരമാകും

ആത്മനിർഭർ അഭിയാൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ രാജ്യത്തെ വിവിധ ഗോത്രവർഗു വിഭാഗങ്ങളെക്കൂടി ഉൾപ്പെടുത്തു ന്നതാണ് പദ്ധതി

സോണുകളിലെ ജനറൽ മാനേജർമാരുമായി റെയിൽവേ മന്ത്രാലയം കൂടിയാലോചന നടത്തി പ്രാദേശിക ഭരണകൂടങ്ങളുമായി സംസാരിക്കാനും കോവിഡ് സ്ഥിതി അവലോകനം ചെയ്യാനും നിർദ്ദേശം നൽകി

ഈ സാമ്പത്തിക വർഷം ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്

അതേസമയം രോഗമുക്തി നേരിടുന്നവരുടെ എണ്ണത്തിലും വൻ വർധനയുണ്ടാ യിട്ടുണ്ട്

കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള സി

താനും കൂടുംബവും കാറന്റൈനിൽ പോവുകയാണെന്നും വേഗത്തിൽ രോഗമുക്തി നേടി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് ടിറ്ററിൽ കുറിച്ചു ട്രംപിന്റെ വിശ്വസ്ത ഹോപ്പ് ഹിക്സണും കഴിഞ്ഞ ദിവസം കോവിഡ് പോസിറ്റീവായിരുന്നു

ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബിനെ തകർത്ത് മുംബൈ വിജയിച്ചിരുന്നു

ലിത്വാനിയൻ എതിരാളി റിക്കാർഡാസ് ബെറാൻ കിസിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ജോക്കോവിച്ച് പരാജയപ്പെടു ത്തിയത്